കോൺഗ്രസ് ബി ജെ പി ധാരണ് സംബന്ധിച്ച കോടിയേരി യുടെ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പച്ചക്കള്ളമെന്ന് കെ പി സി സി പ്രസിഡണ്ടും

ജമ്മു കശ്മീരിലെ സോപോഡിൽ വീണ്ടും ഭീകരരുടെ ഗ്രനേഡ് ആക്രമണം

ഉത്തരേന്ത്യയിൽ ഇന്ന് ഹോളി ആഘോഷിക്കുന്നു

ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്

കോട്ടയം സീറ്റിൽ കേരളാ കോൺഗ്രസ് നേതാവ് പി സി തോമസ് ആയിരിക്കും മത്സരിക്കു ക സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാന രഹിതമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ പറഞ്ഞു

ഭിന്നത യുണ്ടെന്ന് വരുത്തി തീർക്കുന്ന വാർത്തകൾക്ക് അല്പായുസ് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമായതോടെ സംസ്ഥാനത്ത് തെര ഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ചൂടുപിടിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിനാൽ പ്രചാര ണരംഗത്ത് ഒരു പടി മുന്നിലാണ് പ്രധാന വൃക്തികളെ കാണുകയും സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്ന തിര ക്കിലാണ് സ്ഥാനാർത്ഥികൾ വടകര വയനാട് ആറ്റിങ്ങൽ ആല പ്പുഴ എന്നീ മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി പ്രചാരണ രംഗത്ത് സജീവമാകും വടകര യിൽ മത്സരിക്കുന്ന കെ പി സി സി പ്രചാരണ സമിതി തലവൻ കെ മുരളീധരൻ വൈകീട്ട് വടകരയിലെത്തും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ചേരുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണയു ണ്ടെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വസ്തു തയ്ക്ക് നിരക്കാത്താണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല കാസർക്കോട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ സിപിഐഎമ്മും ബി ജെ പിയും തമ്മിലാണ് തെർഞ്ഞെടുപ്പ് സഖ്യം ദേശീയ തല ത്തിൽ ബിജെപിക്കെതിരെ പോരാടുന്ന സിപിഐഎം ഇങ്ങനെ യൊരു കൂട്ടുകെട്ടിന് മുതിരുന്നത് ശരിയാണോ്യെന്നും അദ്ദേഹം ചോദിച്ചു സംസ്ഥാനത്ത് യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നും മുഴു വൻ സീറ്റിലും വിജയിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന ഗ്വ പൂർണപരാജയ മാണെന്നും സിപിഐഎം ഓഫീസുകളിൽപ്പോലും സ്ത്രീകൾക്ക് രക്ഷയില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു ഉച്ചകഴിഞ്ഞ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ൃ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ നൂറ് നൂണ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു യു ഡി എഫിനെ സഹായിക്കാൻ ബി ജെപി ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുന്നുവെന്ന ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ പ്രധാന മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് അതുകൊണ്ട് സിപി ഐഎമ്മിന് ചെയ്യുന്ന ഓരോ വോട്ടും പരോക്ഷമായി പ്രയോജനം ചെയ്യുന്നത് ബി ജെ പിക്കാണെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി സംസ്ഥാനത്തെ അഞ്ചു മണ്ഡലങ്ങളിൽ കോലിബി സഖ്യ മെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന പച്ചക്കള്ളമാ ണെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറ ഞ്ഞു സ്ഥാനാർത്ഥി നിർണയ ചർച്ചക്കു ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധൃമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുമ്പ് ആർ എസ് എസിന്റെ പരസൃ പിന്തുണയോടെ തലശ്ശേരിയിൽ മത്സരിച്ച തെന്നും ആ ഓർമ്മയുടെ ഭാഗമായാണ് കോടിയേരിയുടെ പ്രസ്താ വനയെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു കോൺഗ്രസിന്റെ സഖ്യ ചർച്ചകൾക്ക് വേഗത പോരെന്നും ഇക്കാര്യത്തിൽ രാഹുൽഗാന്ധിക്ക് വേണ്ടത്ര പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി പി സി ചാക്കോ ന്യൂഡൽഹിയിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ മാത്രം ചുമതലയല്ല സഖ്യ ചർച്ചക്ളെന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിന് തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

ചട്ടം ലംഘിച്ച് സ്ഥാപിച്ച പോസ്റ്ററുകൾ ബാനറുകൾ ചുവരെഴുത്തുകൾ പണം കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് സി വിജിൽ എന്ന ആപ്പിലൂടെ ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണമോ പാരിതോഷികമോ വാങ്ങി മാധ്യമങ്ങളിൽ വാർത്ത നൽകുന്നത് നിരീക്ഷിക്കാൻ കണ്ണൂ രിൽ സമിതി രൂപീകരിച്ചു ജില്ലാ കലക്ടർ മീർ മുഹമ്മദലിയുടെ അധ്യക്ഷതയിലാണ് സമിതി പ്രവർത്തിക്കുക റെയിൽവെ ടിക്കറ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പതിച്ച ഗവ

തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനമാണ് ഈ പരസ്യം എന്ന് കാണിച്ച് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീ ഷന് പരാതി നൽകിയിരുന്നു എന്നാൽ റെയിൽവെ സ്വമേധയാ എടുത്ത തീരുമാനമാണിതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇതുസംബന്ധിച്ച് യാതൊരു നിർദേശവും ലഭിച്ചിട്ടില്ലെന്ന് റെയിൽവെ അറിയിച്ചു

സുരക്ഷാസേന യുടെ സ്റ്റേഷനു നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയായിരുന്നു വെന്ന് പൊലീസ് അറിയിച്ചു അക്രമികൾക്കായി തെരച്ചിൽ വ്യാപ കമാക്കി

ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർകിംഗ്സ് ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിനെ നേരിടും രാത്രി എട്ടിന് ചിദംബരം സ്റ്റേഡിയ ത്തിലാണ് മത്സരം കഴിഞ്ഞ വർഷത്തെ എട്ട് ടീമുകളാണ് ഇത്ത വണയും മത്സരത്തിന്

ഈയിടെ നടന്ന നാലു ഗ്രാൻപ്രീകൾ ഫെഡറേ ഷൻകപ്പ് എന്നിവയിലെ പ്രകടനം വിലയിരുത്തിയാണ് അത്ലറ്റു കളെ തിരഞ്ഞെടുത്തത് നേപ്പാളിൽ സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിത ടീം ഫൈനലിൽ കടന്നു ഇന്നലെ സെമിഫൈനലിൽ ബംഗ്ലാ ദേശിനെ മറുപടിയില്ലാത്ത നാല് ഗോളിനാണ് ഇന്ത്യ തോൽപ്പിച്ച ത് അഞ്ചാം കിരീടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്

സാഹോ ദരൃത്തിന്റെയും നന്മയുടെയും ആഘോഷമാണ് ഹോളിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

തിന്മയ്ക്കുമേൽ ന്ന്മ നേടിയ വിജയ ത്തിന്റെ ആഘോഷമാണ് ഹോളിയെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ പത്തുദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ച് പമ്പയിൽ ആറാട്ട് കഴിഞ്ഞു തിരിച്ചെഴുന്നെള്ളിപ്പ് സന്ധ്യ യോടെ സന്നിധാനത്ത് എത്തിയശേഷം ഉത്സവത്തിന് കൊടിയി റങ്ങും തുടർന്ന് രാത്രി പത്തിന് നടയടയ്ക്കും ഇന്ന് മുതൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കേരളത്തിലെ എട്ട് ജില്ലകളിൽ പകൽച്ചൂട് മൂന്ന് ഡിഗ്രിവരെ ഉയരാൻ സാധ്യത യുണ്ടെന്ന് ദുരന്തനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് ലോക ജലദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും

സദാശിവം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാജ്യാന്തര ശിൽപശാല ഉൾപ്പെടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ജലപരിപാലനം പരിപോഷണം വരൾച്ചയും വെള്ളപ്പൊക്കവും നിയന്ത്രിക്കുന്നതിന് ജലസംര ക്ഷണ മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാ രിക്കും നെതർലൻസിൽനിന്ന് അഞ്ചംഗസംഘവും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്

മണ്ണൂർ നഗരിപ്പുറത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ തിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെയാണ് പീഡന വിവരം പുറത്തു വന്നത് അതേസമയം പ്രാതിയെക്കുറിച്ച് അറിയില്ലെന്നും തെരഞ്ഞെ ടുപ്പ് ലക്ഷ്യമിട്ട് ചിലർ നടത്തുന്ന ഗൂഢനീക്കമാണ് ആരോപണ ത്തിന് പിന്നിലെന്നും സിപിഐഎം ചെർപ്പുളശ്ശേരി ഏരിയാ സെക്ര ട്ട കെ ബി സുഭാഷ് മാധ്യമങ്ങളോട് പറഞ്ഞു

യു എ ഇ ഭരണകൂടം സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ മലയാളികളെ അധിക്ഷേപിക്കും വിധം പരാമർശം നടത്തിയെന്ന് കാണിച്ച് പീപ്പിൾസ് ലോ ഫൌണ്ടേഷൻ സമർപ്പിച്ച ഹർജയിലാണ് ഉത്തരവ്

ഇന്നു രാവിലെ സംസ്കാര ചടങ്ങുകൾക്കായി പെട്ടി തുറന്നപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മൃതദേഹം കോട്ടയം മെഡിക്കൽകോളെജി ലേക്ക് മാറ്റി

അവസാന വർഷ ബിരുദ ഫലം കാത്തിരിക്കുന്നവർക്കും കെ മാറ്റ് കേരളാ പരീക്ഷ എഴുതാവുന്നതാണ്

ഇതരസംസ്ഥാനക്കാർക്കി ടയിൽ ക്ഷയരോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനം

ക്ഷയരോഗികളുമായി സമ്പർക്ക ത്തിലേർപ്പെടുന്നവരെ കണ്ടെത്തുന്നതിനും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നതിനും പുതിയ പദ്ധതികൾ ആരോ ഗ്യവകുപ്പ് ആവിഷ്കരിക്കും